പാർലമെന്റിന്റെ വർഷകാല സ്മ്മേളനത്തിന് നാളെ തുടക്കം

അഖിലേന്തൃ മെഡിക്കിൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന്

യു എസ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ജപ്പാന്റെ നവോമി ഒസാക്ക്ക്

പാരദീപ് ഹാൽദിയ ദുർഗപൂർ പൈപ്പ് ലൈൻ ഓഗുമെന്റേഷൻ പ്രോജക്ടിന്റെ ദുർഗ്ഗാപൂർബാങ്ക ഭാഗവും കിഴക്കൻ ചമ്പാരൻ ബാൻക എന്നിവിടങ്ങളിലെ രണ്ട് എൽ പി ജി ബോട്ട് ലിംഗ് പ്ലാന്റുകൾ എന്നിവയാണ് പ്രപ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന പദ്ധതികൾ ചടങ്ങിൽ ് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുക്കും

ഇന്ന് നീറ്റ് പരീക്ഷ എഴുതാത്തവർക്ക് വീണ്ടും അവസരം ഉണ്ടാകില്ല

ഇതേസമയം ഇന്ദ്രപസ്ഥ എഫ്

ഗോൾഡ് എന്ന ചാനലിലൂടെ ഹിന്ദി പരിപാടിയും പ്രക്ഷേപണം ചെയ്യും

കൂടുതൽ വിവരങ്ങളുമായിലക്ഷ്മി മോഹൻ

ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്താണ് പ്രത്യേക ട്രെയിനുകൾ ഓടിക്കാൻ തീരുമാനിച്ചത്

കോവിഡ് സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ സർവീസുകൾക്ക് വേണ്ടിയുള്ള ആവശൃകത റെയിൽവെ വിലയിരുത്തുന്നുണ്ട്

അതിനിടെ ഡൽഹി മെട്രോയുടെ എല്ലാ ലൈനുകളും ഇന്ന് മുതൽ പ്രവർത്തിക്കും

കോവിഡ് മൂലം നിർത്തി വച്ചിരുന്ന ഡൽഹി മെട്രോ സർവീസുകൾ അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഈ മാസം ഏഴ് മുതൽ ഭാഗികമായി സർവ്വീസ് പുനരാരംഭിച്ചിരുന്നു

പൂഞ്ച് ജില്ലയിലെ മാൻകോട്ടെ ഗുൽപൂർ മേഖലകളിൽ ഇന്നലെ വൈകിട്ടോടെ പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിയുതിർക്കുകയായിരുന്നു ആളപായമുണ്ടായതായി റിപ്പോർട്ടില്ല

പി സഞ്ചയ് റൌട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി അനിൽദേശ്മുഖ് എൻ സി പി അദ്ധ്യക്ഷൻ ശരത് പവാർ തുടങ്ങിയവരെ ടെലിഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയാളെ പോലീസ് അറസ്റ്റു ചെയ്തു

ഇയാൾ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽപ്പെട്ടയാളാണെന്ന് അവകാശപ്പെട്ടു

രോഗമുക്തരാകുന്നവരുടെയും ചികിത്സയിൽ ഉള്ളവരുടെയും എണ്ണത്തിലുള്ള അന്തരം വർധിച്ചു വരുന്നതായി കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

മിശ്രയുടെ നേതൃതൃത്ത്ലുള്ള ഉന്നതതല യോഗം ചർച്ച ചെയ്തു

വാക്സിൻ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വിതരണം ചെയ്യുന്ന നടപടികൾ രോഗവ്യാപനം ദീർഘകാലാടിസ്ഥാനത്തിൽ നിയന്ത്രിക്കാനുള്ള ജില്ലാ തലങ്ങളിലുള്ള ആരോഗൃ പ്രവർത്തന പരിപാടി എന്നിവ സംബന്ധിച്ചും ചർച്ചയുണ്ടായി രാജ്യത്തെ കോവിഡ് സ്ഥിതി വിവരങ്ങളുടെ വ്യക്തമായ ചിത്രം ആരോഗ്യ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു നിലവിൽ രോഗത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളും ഭാവിയിലുണ്ടാകാവുന്ന വെല്ലുവിളികളും അദ്ദേഹം വ്യക്തമാക്കി വാക്സിൻ നിർമ്മിച്ചാൽ അത് വിതരണം ചെയ്യുന്നതിനുള്ള ഇ വിൻ പ്ലാറ്റ്ഫോം സംബന്ധിച്ചും ചർച്ചയുണ്ടായി വാക്സിൻ വികസനം സംബന്ധിച്ച പ്രവർത്തനം നീതി ആയോഗ് അംഗം ഡോ

കഴിഞ്ഞ മാസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറിവ് വച്ച് അടുത്ത മാസങ്ങൾക്കായി വിശദമായ കർമ്മ പദ്ധതി ആവിഷ്ക്കരിക്കാൻ ഡോ

സാമൂഹ്യ അകലം പാലിക്കൽ മാസ്ക് ധരിക്കുക കൈ കഴുകുക എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിലവിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ കൂടുതൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുടരുകയാണ് അർജന്റീന പെറു റഷ്യ എന്നിവിടങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും സ്ഥിതി ഗൂരുതരമായി തുടരുന്നു

കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഡൽഹിയിലായിരുന്നു ഒടുവിലത്തെ കൂടിക്കാഴ്ച

ദർബംഗ വിമാനത്താവളത്തിന്റെ പ്പണികൾ വിലയിരുത്തിയ മന്ത്രി നവംബറിൽ ഛാത് പ്രിപ്ടിക്ക് മുമ്പ് വിമാന സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ചു

രാജ്യത്തെ വാഹന നിർമ്മാണ മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ള ദീർഘകാല നിയന്ത്രണ മാർഗ്ഗരേഖയ്ക്കാണ് രൂപം നൽകുന്നത് രാജ്യത്തെ വാഹനങ്ങളിലെ സുരക്ഷ മലിനീകരണ തോത് എന്നിവ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയം നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു

എല്ലാ നടപടി ക്രമങ്ങളും പൂർത്തിയാക്കി യുവാക്കളെ സേന ഏറ്റുവാങ്ങി

ദോഹയിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാൻ ചർച്ചകളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

പുരുഷ ഫൈനലിൽ ഇന്ന് രാത്രി ജർമ്മനിയുടെ അലക്സാണ്ടർ സവറേവ് ഓസ്ട്രിയൻ താരം ഡൊമിനിക് തീമുമായി ഏറ്റുമുട്ടും